മുൻഗണനാ അടിസ്ഥാനത്തിൽ പരിഹരിക്കണമെന്ന് പ്രധാനമന്ത്രി നീതി ആയോഗ്പ് ഭൂരണസമിതി യോഗത്തിന് ന്യൂഡൽഹിയിൽ ്തുടക്കം

ശക്തമാക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്ര മന്ത്രി സുഷമ സ്വരാജ് ചതുർരാഷ്ട്ര സന്ദർശനത്തിന് യാത്ര തിരിച്ചു

കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ സൂചന

ബ്രസീലും ജർമ്മനിയും ഇന്നിറങ്ങും

രാജ്യത്ത് ചരിത്രപരമായ മാറ്റങ്ങൾ വരുത്താൻ നീതി ആയോഗ് ഭരണ സമിതിയ്ക്ക് കഴിയുമെന്ന്

സംസ്ഥാന മുഖ്യമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കുന്നു വിശദാംശങ്ങളുമായി പ്രസാദ് നീലേശ്വരം

ഭരണ രംഗത്തെ സങ്കീർണ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ടീം ഇന്ത്യ എന്ന നിലയിൽ പരസ്പര സഹകരണത്തോട പ്രവർത്തിക്കാനുള്ള സമീപനമാണ് നീതി ആയോഗ് ഭരണ സമിതി കൈക്കൊള്ളുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു രാജ്യത്ത് ഉൽപ്പന്ന സേവന നികുതി സുഗമമായ രീതിയിൽ നടപ്പാക്കാൻ കഴിഞ്ഞത് ഇതിന് ഉത്തമോദാഹരണമാണ് സ്വഛ്ഭാരത് പദ്ധതി ഡിജിറ്റൽ ഇടപാടുകൾ നൈപുണ്യ വികസനം തുടങ്ങിയ പദ്ധതികളുടെ നയരൂപീകരണത്തിൽ വിവിധ സംസ്ഥാന മുഖ്യമന്ത്രിമാർ ഉൾപ്പെട്ട ഉപകമ്മിറ്റികൾ പ്രധാന പങ്കുവഹിച്ചതായി പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി

കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കൽ ് ആയു്ഷ്മാൻ ഭാരത് മിഷൻ ഇന്ദ്രധനുഷ് നുട്രീഷ്യൻ മിഷ്ടന്റി തുടങ്ങി നീതി ആയോഗ് യോഗത്തിന്റെ അജണ്ടയിൽ ഉൾപ്പെട്ട പദ്ധതികളെപ്പറ്റി പ്രധാനമന്ത്രി പരാമർശിച്ചു

ഇന്ത്യയ്ക്ക് കഴിവുകളിലോ വിഭവങ്ങളിലോ പരിമിതികളില്ല

റമദാൻ കാലയളവിൽ ഭീകരരുടെ പ്രകോപനങ്ങളോട് അങ്ങേയറ്റം സഹിഷ്ണതയാണ് സുരക്ഷാ സേനകൾ പുലർത്തിയതെന്ന് ആഭ്യന്തര മന്ത്രാലയം ടവറ്ററിൽ കുറിച്ചു

സംസ്ഥാനത്ത് ഭീകരവിമുക്തവും സമാധാനം നിറഞ്ഞതുമായ അന്തരീക്ഷരിച്ചു ഉറപ്പിക്കാനാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രമമെന്ന് മന്ത്രാലയും വൃക്തമാക്കി

യാത്രക്കാരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതുകൊണ്ട് അറ്റകുറ്റപ്പണിയിൽ അലംഭാവം ഉണ്ടാവാതെ സമയക്ലിപ്തത മെച്ചപ്പെടുത്തേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഉത്തര മധ്യ ഉത്തരപൂർവ്വ പൂർവ്വമധ്യ റെയിൽവേയുടെ പ്രകടനം വിലയിരുത്താൻ ന്യൂഡൽഹിയിൽ ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി ദീർഘനേരത്തെ സമഗ്ര ഗതാഗത തടസം ഒഴിവാക്കണമെന്ന് ശ്രീ ഗോയൽ ആവശ്യപ്പെട്ടു മാത്രമല്ല അങ്ങനെ തടസത്തിന് സാധ്യതയുണ്ടെങ്കിൽ യാത്രക്കാരെ കാലേകൂട്ടി വിവരം അറിയിക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു

എയർലൈനുകളുമായുള്ള മത്സരത്തെ അതിജീവിക്കാൻ യാത്രക്കാരുടെ സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി

ന്യൂഡൽഹിയിൽ വാർത്താ ഏജൻസിയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വൃക്തമാക്കിയത്

ഇപ്പോൾ അമേരിക്ക സന്ദർശിച്ചു വരുന്ന മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് നെവേദയിലുള്ള വിർജിൻ ഹൈപ്പർലൂപ്പ് വൺ കേന്ദ്രം സന്ദർശിച്ച് മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു

ഒരാഴ്ച നീളുന്ന സന്ദർശനത്തിനിടെ ഇറ്റലി ഫ്രാൻസ് ലക്സംബർഗ് ബെൽജീയം എന്നീ രാജ്യങ്ങൾ ശ്രീമതി

ഇറ്റാലിയൻ വിദേശകാര്യ്യമുൾതി എൻസോ മൊവേറോ മിലാനേസിയുമായും ശ്രീമതി സുഷമ ചർച്ച നടത്തും പാരീസ് സന്ദർശനത്തിൽ ശ്രീമതി സുഷമ സ്വരാജ് വിദേശകാര്യ മന്ത്രി ജീൻ യൂവ്സ് ലേ ഡ്രെയിനുമായി കൂടിക്കാഴ്ച നടത്തും

ലക്സം ബർഗ് ഗ്രാന്റ് ഡ്യൂക് ഹെന്റി ആൽബർട്ട് ഗബ്രയേൽ ഫെലിക്സ് മേരി ഗ്യൂല്ലേയുമായും പ്രധാനമന്ത്രി സേവ്യർ ബെറ്റേലുമായും കൂടിക്കാഴ്ച നടത്തും ബൽജിയം സന്ദർശനത്തിനിടെ ശ്രീമതി സുഷമ സ്വരാജ് ബ്രസ്സൽസ്റ്റിൽ ഉപപ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും

ഗ്രീസിന് പുറമെ സുരിനാം ക്യൂബ എന്നീ രാജ്യങ്ങളാണ് രാഷ്ട്രപതി സന്ദർശിക്കുന്നത്

സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ രൂഷ്ട്രപതി ഗ്രീക്ക് പ്രസിഡന്റ് പ്രൊകോപിസ് പാവ്ലോ പൌല്ലോസ് മുതിർന്ന ഉദ്യോഗസ്ഥർ പ്രതിപക്ഷ നേതാക്കൾ എന്നൂവ്രുമാ്യി ചർച്ച നടത്തും ഏഥൻസിൽ അറിയപ്പെടാത്ത സ്പൈനിക്രുടെ സ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിക്കുന്ന രാഷ്ട്രപ്പതി ചരിത്രപ്രധാന്യവും പൌരാണിക പ്രാധാനൃവുമുള്ള സ്ഥലങ്ങളും സന്ദർശിക്കും ഏദൻസിലെ ഇന്തൃൻ സമൂഹത്തേയും രാഷ്ട്രപതി ഇന്ന് അഭിസംബോധന ചെയ്യും

ആഗോള വ്യാപകമായി കര നാവിക വ്യോമ മേഖലയിലെ വസ്തുക്കളുടെ യഥാസമയ സ്ഥാന നിർണയം

സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തി സമാധാന ചർച്ചകൾക്ക് സജ്ജമാകാൻ അഫ്ഗാൻപ്പിസിഡന്റ് അഷ്റഫ്ഘാനി തീവ്രവാദികളോട് അഭ്യർത്ഥിച്ചു താലിബ്ബാനുമായി സമഗ്ര ചർച്ചകൾ നടത്തുന്നതിന് തന്റെ ഗവൺമെന്റ് സന്നദ്ധമാണെന്ന് അദ്ദേഹം പറഞ്ഞു വെടിനിർത്തൽ സ്ഥമിയത്ത് താലിബാൻ തീവ്രവാദികൾക്ക് മരുന്നും മാനുഷിക പ്പിന്തുണയും നൽകുമെന്നും താലിബാൻ തടവുകാർക്ക് തങ്ങളുടെ ്കുടുംബങ്ങളെ കാണുന്നതിന് സൌകര്യം ഏർപ്പെടുത്തുമെന്നും ചില തടവുകാരെ മോചിപ്പിക്കുമെന്നും അഷ്റഫ്ഘാനി പറഞ്ഞു

കരുത്തരായ ജർമ്മനി ബ്രസീൽ എന്നിവർ കളത്തിലിറങ്ങുന്നതാണ് ഇന്നത്തെ പ്രധാന സവിശേഷത ലോകം ഉറ്റുനോക്കുന്ന മത്സരങ്ങളെക്കുറിച്ച് ഇന്ത്യ കണ്ട എക്കാലത്തേയും മികച്ച ഫുട്ബോളറിലൊരാളായ ഐ

വിജയൻ ആകാശവാണിയോട്

മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്

മഴ വരുംദിവസങ്ങളിലും തുടരുമെന്നാണ് കാലാവസ്ഥാ സൂചന കോഴിക്കോട് കട്ടിപ്പാറ ഉരുൾപ്പൊട്ടലിൽ കാണാതായ രണ്ട് പേർക്കായി ഇന്നും തിരച്ചിൽ തുടരുകയാണ്